യുമുൾപ്പെടെ ഒട്ടേറെ നേതാക്കൾ അനുശോചിച്ചു ജമ്മു കശ്മീർ പുനഃസംഘടനാ ബിൽ ലോക്സഭ പാസ്സാക്കി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു

പ്രമുഖ ബി ജെ പി നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ സുഷമ സ്വരാജ് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ന്യൂഡൽഹിയിലെ എയിംസ് ആശുപത്രി യിൽ ഇന്നലെ രാത്രിയായിരുന്നു അവരുടെ അന്ത്യം

കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് രാത്രി ഒമ്പതരയോടെ ആശുപത്രിയിൽ പ്രവേശിച്ച അവരുടെ ജീവൻ രക്ഷിക്കാനായില്ലെന്ന് എയിംസ് കേന്ദ്രങ്ങൾ അറിയിച്ചു ജമ്മു കശ്മീരിന്റെ പുനഃസംഘടനാ ബിൽ പാർലമെന്റ് പാസ്സാക്കിയതിൽ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ് ട്വീറ്റ് ചെയ്തതിനു പിന്നാലെയാണ് സുഷമസ്വരാജിനെ ആശുപത്രി യിൽ പ്രവേശിപ്പിച്ചത്

വൈകിട്ട് ലോധി റോഡ് വൈദ്യുത ശ്മശാനത്തിൽ സംസ്കരിക്കും ് ് ് ് ് ് ് ് ് ആദ്യ നരേന്ദ്രമോദി ഗവൺമെന്റിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷ മ സ്വരാജ് പാർട്ടിയിലും മന്ത്രിസഭയിലും ജനകീയ മുഖമായാണ് അറിയപ്പെട്ടിരുന്ന ത് ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന വൃക്തിത്വത്തിന് ഉടമയായിരുന്നു അവർ

എ ബി വി പി പ്രവർത്തകയായി രാഷ്ട്രീയത്തിൽ കടന്നുവന്ന അവർ പിന്നീട് ബി ജെ പിയുടെ ശക്തയായ നേതാവായി മാറി

ബി വാജ്പേയ് മന്ത്രിസഭയിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്നു വാർത്താവിനിമയം ആരോഗ്യ കുടുംബക്ഷേമം പാർലമെന്ററി കാര്യം തുടങ്ങിയ വകുപ്പുകളും അവർ വഹിച്ചിട്ടുണ്ട്

ഏഴുതവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടി ഡൽഹിയുടെ ആദ്യവനിതാ മുഖ്യമന്ത്രിയായിരുന്നു

ആദ്യ വനിതാ വക്താവായും പ്രവർത്തിച്ചു മികച്ച പാർലമെന്റേറിയന് അവാർഡും അവർക്ക് ലഭിച്ചിട്ടുണ്ട്

വിദേശ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇട പെടുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തിയ സുഷമസ്വരാജ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ നേടി സുഷമ സ്വരാജിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാ നമന്ത്രിയുമുൾപ്പെടെ ഒട്ടേറെ നേതാക്കൾ അനുശോചിച്ചു രാജ്യത്തിന് പൊതുജീ വിതത്തിൽ ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിന്ന വ്യക്തിത്വമാണ് നഷ്ടമായ തെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ജനങ്ങളെ സഹായിക്കാൻ ജീവിച്ച വ്യക്തി എന്ന നിലയിലാവും ചരിത്രം അവരെ ഓർമ്മിക്കുകയെന്നും രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിന് വൻനഷ്ടമാണ് സുഷമയുടെ മരണമെന്ന് ഉപരാഷ്ട്രപതി എം

നല്ല ഭരണാധികാരിയും മികച്ച പാർലമെന്റേറി യനും വാഗ്മിയുമായിരുന്നു സുഷമയെന്നും അദ്ദേഹം ടിറ്ററിൽ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തിളക്കമാർന്ന അധ്യായം അവസാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി പറഞ്ഞു സുഷമയുടെ മരണം വ്യക്തിപരമായ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ബി ജെ പിയുടെ ശക്തമായ ശബ്ദമായി രുന്നു സുഷമയെന്ന് പാർട്ടി അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ അനു സ്മരിച്ചു നയതന്ത്ര രംഗത്തെ അവരുടെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ്സിംഗ് നിതിൻ ഗഡ്കരി എസ് ജയശങ്കർ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ബി

വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ രാജ്യസഭയിലെ പ്രതിപക്ഷനേതാവ് ഗുലാം നബി ആസാദ് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങി ഒട്ടേറെ നേതാക്കൾ സുഷമസ്വരാജിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു

് ് ് ് ് ് ് ജമ്മു കശ്മീരിനെ രണ്ട് കേന്ദ്രഭരണപ്രദേശങ്ങളായി മാറ്റുന്ന പുനഃസം ഘടനാ ബില്ലിനും പ്രത്യേക പദവി എടുത്തുകളയുന്ന പ്രമേയങ്ങൾക്കും പാർല മെന്റ് അംഗീകാരം നൽകി

തുടർന്ന് ലോക്സഭ അനിശ്ചിത കാലത്തേക്ക് പിരിഞ്ഞു ബില്ലും പ്രമേയ ങ്ങളും രാജ്യസഭ തിങ്കളാഴ്ച പാസ്സാക്കിയിരുന്നു സർദാർ പട്ടേലിന് ഏറ്റവും അനു യോജ്യമായ ആദരവാണ് ബില്ലുകൾ പാസ്സാക്കിയതിലൂടെ പാർലമെന്റ് നൽകിയ തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഭരണഘടനാ നിയമങ്ങളും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളും പാർലമെന്ററി നടപടിക്രമങ്ങളും ബി ജെ പി ലംഘിക്കുകയാ ണെന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന യോഗം ആരോപിച്ചു രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സോണിയാഗാന്ധിയുൾപ്പെടെ പ്രമുഖർ പങ്കെ ടുത്തു

പലിശ നിരക്കുകളിൽ കുറവു വരുത്തിയേക്കുമെ ന്നാണ് സൂചന

നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യ തയുളള ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീ ക്ഷണ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് എറണാകുളം ഇടുക്കി മലപ്പു റം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ബി അറിയിച്ചു

മീ

മൂന്നു് ഡാമുകളുമായി ബന്ധപ്പെട്ട നദികളുടെ കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത് പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു വഴിക്കടവ് പുഞ്ചക്കൊല്ലി ഉൾവനത്തിൽ തമിഴ്നാട് അതിർത്തിയിൽ ഉരുൾപൊട്ടി കോരൻപുഴ വഴിമാറിയൊഴുകി പുഞ്ചക്കൊല്ലി ആദിവാസി കോളനിയിൽ കനത്തനാശമുണ്ടായി കോളനിയിലെ അങ്കണവാടിയുടെ മതിൽ പൂർണമായും പുഴ കവർന്നെടുത്തു ഏകാധ്യാപക വിദ്യാലയത്തിനും നാശം നേരിട്ടു കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് ശക്തമായ മഴയിലും കാറ്റിലും കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു കുന്ദമംഗലം പന്തീർപാടം കാരക്കുന്നുമ്മൽ ഷമീർ ആണ് മരിച്ചത് വയനാട്ടിൽ മഴ കനത്തു

ഉയർന്നു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപൊക്ക ഭീക്ഷണിയിലാണ് പല സ്ഥലങ്ങളിലും ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടായി

ഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു

കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ മിക്ക പുഴകളും കരകവിഞ്ഞു ഉളിക്കൽ വട്ടാംതോട് മണിക്കടവ് പാലങ്ങൾ വെള്ളത്തിൽ മുങ്ങി മണിക്കടവ് പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ്

മുരങ്ങളും വൈദ്യുതി തൂണുകളും പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു

ഷോളയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം മഴയിൽ തകർന്ന കോഴിക്കൂടം റോഡിൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപി ക്കാനായില്ല ആലപ്പുഴയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്

മലയോര റോഡുകളിലൂടെ രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി

ഗയാനയിൽ നടന്ന അവസാന മത്സരത്തിൽ ഏഴു വിക്കറ്റിനായിരുന്നു ഇന്ത്യ യുടെ വിജയം

തൃശൂർ ഫൈനലിൽ പ്രവേശിച്ചു രണ്ടാം സെമിയിൽ പാലക്കാടിനെ ഏകപക്ഷീ യമായ നാലു ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത് ഫൈനലിൽ ഇന്ന് തൃശൂർ കോട്ടയത്തെ നേരിടും

അവയർനസ് വിഭാഗത്തിൽ കോഴിക്കോട് സൈബർ ക്രൈംസ്റ്റേഷനിലെ സിവിൽ പൊലീസ് ഓഫിസർ ഫെബിൻ കെ

ക്കാൻ ബോധപൂർവ്വമായ ശ്രമം നടക്കുന്നതായി മന്ത്രി ഡോക്ടർ കെ

ജലീൽ പറ ഞ്ഞു കേരള ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ പ്രളയം ചരിത്രരേഖകളും ഓർമ കളും ഗവേഷണ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രളയത്തിനുശേഷമുള്ള അതിജീവനത്തിന്റെ പാഠങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നുകൊടുക്കാനായി രേഖപ്പെടുത്തി വയ്ക്കണമെന്ന് മന്ത്രി പറഞ്ഞു വികസനത്തിന് പ്രധാനപ്പെട്ട സൂചകം പ്രദേശത്തിന്റെ നല്ല വായുവും വെള്ളവുമാണെന്ന് മന്ത്രി വി

ജില്ലാ പഞ്ചായ ത്തിന്റെ ജലരക്ഷ ജീവരക്ഷ ബ്ലൂ ആർമിയുടെ ഭാഗമായി ഒരു മഴക്കുഴി ഒരു വൃക്ഷം ഓരോ കുട്ടിക്കും പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ കണ്ടശ്ശാം കടവിൽ നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി

കാരണം മുംബൈ നാഗർകോവിൽ എക്സ്പ്രസ്സ് ലോകമാന്യതിലക് തിരുവന ന്തപുരം നേത്രാവതി എക്സ്പ്രസ്സ് എന്നിവ റദ്ദാക്കിയതായി റെയിൽവെ അറിയി ച്ചു

ത്തോടെ അരുത് വലിച്ചെറിയരുത് കത്തിക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി ഹരിതകേരളം മിഷനും കിലയും സംയുക്തമായി പ്രചാരണ പരിപാടികൾ നട ത്തും ഇതിന്റെ ഭാഗമായി കോർപറേഷൻ മേയർമാരെയും മുൻസിപ്പൽ ചെയർപേ ഴ്സൺമാരെയും സെക്രട്ടറിമാരെയും പങ്കെടുപ്പിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് ശില്പ ശാല സംഘടിപ്പിക്കും മന്ത്രി എ

മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും

വത്തിന് ഇത്തവണ നിയമസഭാ വളപ്പിൽ വിളയിച്ച നെൽക്കതിരുകൾ ഉപയോഗി ക്കും നെല്ലിന്റെ വിളവെടുപ്പ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു